അഭിസംബോധന ചെയ്യും ലോക്ഡൌൺ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചേക്കും

സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണ്റായി വിജയൻ

തൽക്കാലം തിരികെ എത്തിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി നാളെ വിഷു

ആഘോഷങ്ങൾ പരിമിതമാക്കാൻ നിർദ്ദേശം അനാവശ്യമായി പുറത്തിറങ്ങിയാൽ നടപടി

ലോക്ക്ഡൌൺ സംബന്ധിച്ച തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നാളത്തെ അഭിസംബോധനയിൽ ഉണ്ടായേക്കും

രണ്ട് പേർ സമ്പർക്കം വഴിയാണ് രോഗബാധിതരായത് ഒരാൾ വിദേശത്ത് നിന്ന് വന്നയാളാണ്

വിട്ടുവീഴ്ചയില്ലാത്ത നിയന്ത്രണം തുടരുടെട്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് നാല് പൊലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹ്കൃപ്പദ്ഞ്ഞു

ഇത്തവണത്തെ വിഷുക്കൈനീട്ടം നാടിനു വേണ്ടിയാകട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിഷുക്കൈനീട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേയ്ക്ക് കൈമാറി മാതൃക സൃഷ്ടിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു

പ്രയത്നങ്ങൾ ഫലം കാണുന്നുണ്ടെങ്കിലും ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു

ചൈനയിൽ നിന്നുള്ള കോവിഡ്ട് പരിശോധനാ കിറ്റുകളുടെ ആദ്യസെറ്റ് മറ്റന്നാൾ രാജ്യത്ത് എത്തുമെന്ന് ഐ സി എം

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

സമൂഹ വ്യാപന സാധ്യത വിലയിരുത്താനായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സർവ്വെ ആരംഭിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു

ചീഫ് ജസ്റ്റിസ് എസ്

പ്രവാസികൾ എവിടെയാണോ അവിടെ തുടരുക യാത്രാ വിലക്ക് നീക്കി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതി വൃക്തമാക്കി വിദേശത്ത് കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഹർജികളിലായിരുന്നു കോടതിയുടെ പ്രതികരണം

ഇത്തവണ്ട് ആഘോഷങ്ങളില്ലാത്ത വിഷുവാണ് മലയാളി കൾക്ക് ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വിഷു ആഘോഷങ്ങൾ വീട്ടിൽ മാത്രമായി ഒതുങ്ങും ജനങ്ങൾ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങാൻ സാധ്യത യുള്ളതിനാൽ ഇന്ന് സംസ്ഥാനമെങ്ങും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്

ഗുരുവായൂർ ക്ഷേത്ര ത്തിൽ വിഷുക്കണി ഒരുക്കുമെങ്കിലും ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല പരിമിതമായ ചടങ്ങുകളായിരിക്കും സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്ര ങ്ങളിലും നടക്കുക വീടുകളിൽ ലളിതമായി കണിയൊരുക്കി കൊറോണ വറുതികൾക്കുശേഷം നല്ലൊരു നാളെയെ വരവേൽക്കാൻ യുടെ മലയാളികൾ ഒരുങ്ങുകയാണ്

കോവിഡ് ഭീതിയിൽ കഴിയുമ്പോഴും കണിയൊരുക്കി വിഷുവിനെ വരവേൽക്കാനൊരുങ്ങുകയാണ് മലയാളികൾ ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

പേഴ്സണൽ പ്രൊട്ടക്ഷിൻ കിറ്റിന്റെ ഉപയോഗം കുറയ്ക്കുന്ന തിനോടൊപ്പം നിമിഷനേരം പ്രക്കൊണ്ട് സ്രവം ശേഖരിക്കാമെന്നതുമാണ് വിസ്കിന് പ്രിയമേറാൻ കാരണ്ട്

ജയചന്ദ്രൻ

സ്പെയിനിലും മരണസംഖ്യ ഉയരുകയാണ്

ബ്രിട്ടണിലും മരണസംഖ്യ പതിനായിരം കവിഞ്ഞു

ഉസ്ബെക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ടുണീഷ്യ നൈജർ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് തുടങ്ങിയ ഇടങ്ങളിലും മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ഉയരുകയാണ്

മാനന്തവാടി പിലാക്കാവ് സ്വദേശിനിക്കും കാട്ടിക്കുളം സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

ഐ ഐ

ഇതല്ലാതെ പ്രചരിക്കുന്ന മറ്റ് ഐഡികൾ വ്യാജമാണെന്നും സംഭാവന നൽകുന്നതിന് മുൻപ് വാസ്തവം മനസ്സിലാക്കണമെന്നും പി ഐ ബി ഫാക്ട് ചെക്ക് അറിയിച്ചു